ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതായും പ്രധാനമന്ത്രി

എൽ ഫുട്ബോളിൽ ഇന്ന് ഗോവ എഫ് സി ഒഡീഷയെ നേരിടും

കോവിഡ് കാലത്ത് ഇന്ത്യയുടെ സാങ്കേതികവിദൃ സ്വയം രൂപപ്പെടുകയും കഴിവ് തെളിയിക്കുകയും ചെയ്തു മഹാമാരിയെ തുടർന്ന് ലോകം നാല് ചുമരുകളിലേക്ക് ചുരു ങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഐ

വസൂരി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ കാലത്ത് ഇന്തൃ മറ്റ് രാജ്യങ്ങളെ ആയിരുന്നു അശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്ന് കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ലോകത്തെ സാങ്കേതികമായി നയിക്കത്തക്ക വിധത്തിൽ ലോകോത്തര നിലവാരമുള്ള ഉത്പന്നങ്ങൾ തദ്ദേശീയമായി നിർമിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

ശ്രീനഗറിലെ വിവിധ പ്രദേശങ്ങൾ ഇന്ന് സന്ദർശിക്കുന്ന സംഘം നാളെ ജമ്മുവിൽ എത്തും കോവിഡ് മഹാമാരിയെ തുടർന്ന് വിദേശ പ്രതിനിധികളുടെ സന്ദർശനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു

സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണം തീരദേശ നിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ സമുദ്ര ജൈദ്ധ് വൈവിധ്യ സംരക്ഷണം തുടങ്ങിയവ ഉറപ്പാക്കുകയാണ് ബ്ലും ഇക്കോണമി കരട് നയത്തിന്റെ ലക്ഷ്യം

സുജൻപൂരിൽ കോൺഗ്രസ് എട്ട് സീറ്റും ബി ജെ

ആറും സ്വതന്ത്രസ്ഥാനാർത്ഥി ഒന്നും സീറ്റ് വീതം നേടി

ജെ പിക്ക് ഒരു സീറ്റിൽ മാത്രമാണ് ഇവിടെ വിജയിക്കാനായത്

തെലങ്കാന ഗവർണർ ഡോ തമിഴിസൈ സൌന്ദരരാജന് പുതുച്ചേരിയുടെ അധിക ചുമതല നൽകിയതായി രാഷ്ട്രപതി ഭവൻ അറിയിച്ചു

ജെ

യുടെ പരിവർത്തൻ യാത്രയുടെ അവസാന ഘട്ടം ഉദ്ഘാടനം ചെയ്യാനാണ് സന്ദർശനം

പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ദേശീയതലത്തിൽ കുറയുന്നതും ആശ്വാസകരമാണ്

ഈ ുരീജ്യങ്ങളിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദം ഇന്ത്യയിൽ സ്ഥീരീകരിച്ചതിനെ തുടർന്നാണ് നടപടി

പോസ്റ്റൽ കൊണ്ടുപോകുന്ന സംഘത്തിനൊപ്പം വീഡിയോ ബാലറ്റ് ഗ്രാഫറെയും ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

ബാലൻ മേളയുടെ ഉദ്ഘാടന കർമ്മം വൈകിട്ട് ആറിന് ഓൺലൈനായി നിർവഹിക്കും

കൊച്ചിയിലെ പ്രധാനു വേദിയായ സരിത തീയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ടി

ട് വീനോദ് എംഎൽഎ അധ്യക്ഷത വഹിക്കും

ന്യൂഡൽഹിയിലെ എത്യോപ്യൻ എംബസ്സിയോടനുബന്ധിച്ചുള്ള താമസ സംവിധാന ങ്ങളും അനുബന്ധ സൌകര്യങ്ങളും അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും വിദേശകാരൃമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടി ക്കാഴ്ച നടത്തും

ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് റഷ്യൻ മന്ത്രി മോർഗുലോവുമായി അദ്ദേഹം ചർച്ച നടത്തും

ഇതിന്റെ ഭാഗമായി നാറ്റോ പ്രതിരോധ മന്ത്രിമാരുടെ രണ്ട് ദിവസത്ത്രി സമ്മേളനം നടത്തും

ശിക്ഷിക്കപ്പെട്ടവർ അൻസാർ അൽ ഇസ്താം എന്ന നിരോധിത സംഘടനയിലെ അംഗങ്ങളാണ്

എൽ ഫുട്ബോളിൽ ഇന്ന് ഗോവ എഫ്

ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനോട് ഏകപക്ഷീയമായ നാലു ഗോളുകൾക്ക് പരാജയപ്പെട്ടു